പ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും

സംസ്ഥാനത്ത് പ്രചരണ ചൂട് ഉച്ചസ്ഥായിയിൽ

ശത്തിൽ ശക്തി പ്രകടിപ്പിക്കുവാൻ മുന്നണികൾ ഒരുങ്ങി

ഉയിർത്തെഴുന്നേൽപ്പിന്റെ സ്മരണയുമായി ഇന്ന് ഈസ്റ്റർ

ദേവാലായങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ

ഇന്തൃയുടെ മിസൈൽ വേധ പടക്കപ്പൽ ഐ

ഇംഫാൽ നീറ്റിലിറക്കി

സന്തോഷ് ട്രോഫി ഫൈനൽ ഇന്ന്

പോരാട്ടം വൈകുന്നേരം മൂന്നര മുതൽ

വോട്ട് ഉറപ്പിക്കാനുള്ള അവസാനഘട്ട ഓട്ടപാച്ചിലിലാണ് സ്ഥാനാർത്ഥികളും നേതാക്കളും

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉത്തർപ്രദേശ് ബിഹാർ പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പൊതുയോഗങ്ങ ളിൽ സംബന്ധിച്ചു

വീണ്ടും അധികാരത്തിലെത്തി യാൽ അഴിമതിയും കുടുംബ രാഷ്ട്രീയവും ദരിദ്രരെ ചൂഷണം ചെയ്യുന്നതും അവസാനിപ്പിക്കുമെന്ന് ശ്രീ

ഗുജറാത്തിലെ പഠാനിലും രാജസ്ഥാനിലും ഇന്ന് പ്രധാനമന്ത്രി തെരെഞ്ഞെടുപ്പ് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും കോൺഗ്രസ്സ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഛത്തീസ്ഗഡിലും ബീഹാറിലും ഇന്നലെ പ്രചാരണം നടത്തി

ബീഹാറിൽ ജെ

ഉത്തർപ്രദേശിൽ സമാജ് വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ബി

അധ്യക്ഷൻ അജിത്ര് സിങ് എന്നിവർ ഫിറോ സ്ബാദിലെ റാലിയിൽ സംബന്ധിച്ചു

ന്യൂസ് ഡസ്ക് ആകാശവാണി

ഇന്ന് വൈകിട്ട് ആറുമണിക്ക് കൊട്ടിക്കലാശം നടക്കും വോട്ടെടുപ്പിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെരെ ഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു രാവിലെ എഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംങ് വിശദാംശങ്ങളുമായി സുരേഷ്

ഏറ്റവും കൂടുതൽ വോട്ടർമാർ മലപ്പുറത്തും കുറവ് വയനാട്ടിലുമാണ്

സ്ഥാനാർത്ഥികൾ കൂടുതൽ ഉള്ള ആറ്റിങ്ങൽ വയനാട് തിരു വനന്തപുരം മണ്ഡലങ്ങളിൽ ഒന്നിലേറെ വോട്ടിങ്ങ് യന്ത്രങ്ങൾ ഉപ യോഗിക്കും

ഇംസ്ലാംപൂർ കാണ്ടി നോവ്ദ ഹാബിബ്പൂർ ഭട്ട്പാര എന്നീ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്

തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങളെ ശ്രീ സിദ്ധു പ്രിഥമദൃഷ്ട്യാ ലംഘിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്പറഞ്ഞു

തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് നടപടി

എന്നാൽ ഗവൺമെന്റ് ഓഫീസുകൾക്ക് നാളെ അവധി ഉണ്ടായിരിക്കുന്നതല്ല

കുരിശു മരണത്തി നുശേഷം വിശ്വാസികൾക്ക് പ്രത്യാശ നൽകുന്ന പുനരുത്ഥാനത്തിന്റെ ദിനമാണിന്ന് അൻപത് ദിവസത്തെ നോമ്പ് കഴിഞ്ഞ് ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഉയിർപ്പ് പെരുന്നാൾ ആഘോഷിക്കുന്നു ദേവാലയ ങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും കുർബാനയും നടന്നു മലയാളി കൾക്ക് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം മുഖ്യമന്ത്രി പിണറായി വിജ യൻ തുടങ്ങിയവർ ഈസ്റ്റർ ആശംസകൾ നേർന്നു

മുംബൈയിലെ മസഗോൺ ഡോക് കപ്പൽ നിർമ്മാണശാലയിൽ ഗൈഡ് മിസൈൽ ഡിസ്ട്രോയർ ഇട്ഫാൽ പടക്കപ്പൽ കമ്മീഷൻ ചെയ്ത് കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാവികസേനയ്ക്ക് ദീർഘക്ടില്ലിവീക്ഷണ പദ്ധതിയുണ്ടെന്നും ഇതിന്റെ ഭാഗമായി കൂട്ടുതൽ അന്തർവാഹിനികളും വിമാനങ്ങളും സേനയിൽ ഉൾപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ഐ എ ഐ എസ് എസ് ഭീകര സംഘടനയുമായി ബന്ധമുള്ള ഒരാളെ ഡൽഹിയിൽ നിന്നും ഇന്നലെ അറസ്റ്റു ചെയ്തു പിടിയിലായ ആൾ ഉത്തർപ്രദേശിലെ അംറോഹ സ്വദേശിയാണെന്ന് സ്ഥിരീകരിച്ചു തീവ്രവാദികളുമായി ചേർന്ന് ഐ എസ് മാതൃകയിൽ രാജ്യത്തിനെതിരെ യുദ്ധം നയിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ഇയാളെന്ന് എൻഐഎ സ്ഥിരീകരിച്ചു

ഥേയ്ൻ പ്രവിശ്യയിലുള്ള ഡാമ്ത് ജില്ലയിലെ നിയന്ത്രണം വിമതർ ഏറ്റെടുത്തു ഒരാഴ്ചയായി ഈ മേഖലയിൽ കലാപം തുടർന്നു വരികയാണ് ആഭ്യന്തര കലാപത്തിന് ഇറാൻ സഹായം നൽകുന്നുവെന്നാണ് യമൻ പ്രസിഡന്റ് ആബേദ് റാബോ മൺസൂറിന്റെ ആരോപണം

ചിത്രത്തിന്റെ സംവിധായകൻ ജയരാജും ഛായഗ്രഹകൻ നിഖിൽ എസ് പ്രവീണുമാണ്

എൽ ക്രിക്കറ്റിൽ ഇന്ന്ലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനും രാജസ്ഥാൻ റോയൽസിനും ജയം ഡൽഹി ക്യാപിറ്റൽസ് കിംങ്സ് ഇലവൻ പഞ്ചാബിനെ അഞ്ച് വിക്കറ്റിനാണ് തോൽപ്പിച്ചത്

ആദ്യമത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ ഏഴുപന്തുകൾ ബാക്കി നിൽക്കെ അഞ്ച് വിക്കറ്റിനാണ് രാജസ്ഥാൻ തോൽപ്പിച്ചത് ഇന്ന് സൺറൈസേഴ്സ് ഹൈദ്രാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേ ഴ്സിനെയും ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനേയും നേരിടും

ഉച്ചയ്ക്ക് രണ്ട് മണിമുതിൽ രാത്രി എട്ട് മണിവരെയുള്ള സമയങ്ങളിൽ ശക്തമായ് ഇടിമിന്നലിന് സാധൃതയുള്ളതിനാൽ മുൻകരുതൽ എടുക്കണമെന്ന് സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി അറിയിച്ചു